പുനർനിർമിതിക്കായി സംസ്ഥാന ഗവൺമെന്റ് വായ്പയെടുക്കുന്നു ലോകബാങ്ക് ഏഷ്യൻ വികസന ബാങ്ക് പ്രതിനിധികളുമായി ചീഫ് സെക്രട്ടറി തിരുവനന്തപുരത്ത് ചർച്ച നടത്തി

നേതൃത്വത്തിലുളള കേന്ദ്രസ്ംഘവും ഇന്ന് സംസ്ഥാനത്ത് ബാങ്കുകളും ഇൻഷുറൻസ് കമ്പനികളും നടപ്പാക്കുന്ന ദുരിതാശ്ചാസ പദ്ധതികൾ കേന്ദ്രസംഘം വിലയിരുത്തും

കേന്ദ്രഗവൺമെന്റ് പ്രത്യേക പാക്കേജ് പ്രഖ്യാപിക്കണമെന്ന് കോൺഗ്രസ് അധ്യക്ഷൻ രാഹുൽഗാന്ധി ഉപാധികളില്ലാത്ത വിദേശസഹായങ്ങൾ സ്വീകരിക്കാമെന്നും രാഹുൽ

ബാധിക്കുന്ന സ്ഥലങ്ങളിലെ പുനരധിവാസം പരിശോധിക്കുമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ ഓഖി ദുരിതാശ്വാസഫണ്ട് വക മാറ്റി ചെലവിട്ടില്ലെന്നും മുഖ്യമന്ത്രി പ്രളയം വായ്പ പ്രളയക്കെടുതി മറികടക്കാനുളള വായ്പയ്ക്കായി സംസ്ഥാന ഗവൺമെന്റ് ലോകബാങ്ക് ഏഷ്യൻ വികസന ബാങ്ക് പ്രതിനിധികളുമായി തിരുവനന്തപുരത്ത് ചർച്ച നടത്തി ലോകബാങ്ക് കൺട്രി ഡയറക്ടറുടെ ചുമതലയുള്ള ഹിഷാം അബു എ ഡി ബി ഇന്ത്യ റെസിഡന്റ് മിഷൻ ഡയറക്ടർ കെഞ്ചി യോക്കായാമാ എന്നിവരുമായാണ് ചീഫ് സെക്രട്ടറി ടോം ജോസിന്റെ നേതൃത്വത്തിലുള്ള സംഘം ചർച്ച നടത്തിയത്

പ്രളയത്തിൽ രാഷ്ട്രീയം കലർത്താൻ ആഗ്രഹിക്കുന്നില്ല ദുരന്തബാധിതരുടെ അവസ്ഥയെന്തെന്ന് അറിയാനും ജനങ്ങൾക്കൊപ്പം ഉണ്ടെന്ന് അറിയിക്കാനുമാണ് താൻ വന്നത്

റേഷൻ കാർഡുകളുടെയും മറ്റു രേഖകളുടെയും വിതരണം വേഗത്തിലാക്കുന്നതിന് താലൂക്ക് തലത്തിൽ അദാലത്ത് നടത്തുമെന്നും മന്ത്രി പറഞ്ഞു

അതേസമയം ദുരിതാശ്ചാസ ക്യാമ്പുകൾ പ്രവർത്തിക്കുന്നത് ഉൾപ്പെടെയുളള മുന്നൂറിലേറെ സ്കൂളുകൾ ഇന്ന് തുറക്കാനായില്ല

പ്രളയക്കെടുതികൾ കണ്ട് മരവിച്ച മനസുമായി എത്തിയ കൂട്ടികളുടെ ആത്മധൈര്യം വീണ്ടെടുക്കാനുള്ള പഠനപ്രക്രിയക്കാണ് അധ്യാപകർ ഊന്നൽ നൽകുന്നത്

ആഭ്യന്തര അന്താരാഷ്ട സർപ്പീസുകൾ ഒരുമിച്ച് തുടങ്ങാൻ കഴിയും ്വിധമാണ് സിയാൽ പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കുന്നത്

മാനന്തവാടിക്കട്ടുത്ത് ദ്വാരകയിൽ ഒരേക്കറോളം സ്ഥലം രണ്ടാൾ താഴ്ചയിലേക്ക് താണു പോയി മാനന്തവാടി താലൂക്കിലെ ദ്വാരക ചാമടത്തു പടിയിലെ ഒരേക്കർ പറ്ബാണ് നാലു മീറ്ററോളം താഴ്ന്നു പോയത്

കേരളം നേരിടുന്ന ദുരന്തം കണക്കിലെടുത്ത് പരമ്പരാഗതമായ ചടങ്ങുകൾ മാത്രമാണ് നടത്തിയത് പത്തനംതിട്ടനിന്നും കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി പ്രതിനിധി ബിജി വർഗ്ഗീസ്

രാമറാവുവിന്റെ മകനും ചലച്ചിത്രതാരവുമായ നന്ദമുരി ഹരികൃഷ്ണ വാഹനാപകടത്തിൽ മരിച്ചു

തെലുങ്കുദേശം പാർട്ടി സ്ഥാപകൻ കൂടിയായ എൻ

ആറിന്റെ നാലാമത്തെ മകനാണ് നന്ദമുരി ഹരികൃഷ്ണ ്ജൂനിയർ എൻ ടി